കേന്ദ്ര ബജറ്റ് ധന്മന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും

ചൈനയിലെ വുഹാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെയെത്തിക്കുന്നതിനുള്ള പ്രത്യേക വിമാനം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടു

അഞ്ച് ലക്ഷം കോടി ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വ്യാവസായിക മേഖലയിലെ പ്രകടനം പ്രധാന പങ്കുവഹിക്കുമെന്ന് സർവേയിൽ വൃക്തമാക്കി

ഊർജലിഭൃത് കുറവ് അപര്യാപ്തമായ ഗതാഗതം തുടങ്ങിയവ വളർച്ചയെ പ്രപ്തികൂലമായി ബാധിക്കുന്നുണ്ട്

സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിന് വനിതാ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിരവധി പരിപാടികളും സാമ്പത്തിക സർവേയിൽ അടിവരയിട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കയറ്റുമതിയിലൂടെയും വ്യാപാര സൌഹൃദ ചുറ്റുപാടിലൂടെയും അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയെന്ന നേട്ടം കൈവരിക്കാനുള്ള ബഹുമുഖ അജണ്ടകളാണ് സർവേ രേഖപ്പെടുത്തിയതെന്നും ശ്രീ മോദി ട്വീറ്റ് ചെയ്തു

ഇന്ത്യ ലോകനിലവാരത്തില്ലേക്ക് ഉയരുകയാണെന്ന കാര്യവും രാഷ്ട്രപതി എടുത്തു പ്പെട്ഞതായി പ്രധാനമന്ത്രി ടിറ്റർ സന്ദേശത്തിൽ വൃക്തമാക്കി ദശാബ്ദങ്ങളായി രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ രാഷ്ട്രം ക്കെകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ഇന്ത്യൻ സമ്പദ് വൃവസ്ഥയുടെ വികാസ പരിണാമങ്ങൾ അവലോകനം ചെയ്യുന്ന ഗവൺമെന്റിന്റെ വാർഷിക രേഖയായ സാമ്പത്തിക സർവെ റിപ്പോർട്ട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള സമ്പദ് വൃവസ്ഥയിലെ കുറഞ്ഞ വളർച്ചാ നിരക്ക് ഇന്ത്യയേയും ബാധിച്ചിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ മൂന്ന് പാദങ്ങളിലായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നിട്ടു നിൽക്കുകയാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ആനുപാതികമായി ബാങ്കിംഗ് മേഖല ഉയർന്ന് വരേതുന്നും അദ്ദേഹം പറഞ്ഞു

സമ്പദ് വൃവസ്ഥയ്ക്ക് ഉണർവേകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്

തൃശ്ശൂരിൽ നിന്നും ചെറുക്ടിടി കച്ചവടക്കാരനായ ജോബി ബജറ്റ് പ്രതീക്ഷകൾ ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്നു

ചർച്ചകളും വാദപ്രതിവാദങ്ങളും ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധങ്ങളുടെ പേരിലുള്ള അക്രമസംഭവങ്ങൾ സമൂഹത്തെയും രാഷ്ട്രത്തെയും ദുർബലമാക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു

ക്ർഷകരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ട്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ശ്രീ

രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന സമയം കോൺഗ്രസ് ഡി എം കെ

അംഗങ്ങൾ കറുത്ത ബാന്റ് ധരിച്ച് പ്രതിഷേധിച്ചതായി ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു

ഡോക്ടർമാർ നിർദേശിച്ച അവശ്യ മരുന്നുകളും മാസ്കുകളും കയ്യുറകളും ഭക്ഷണപൊതികളും ഉൾപ്പെടെയുള്ളവ വിമാനത്തിൽ ഉണ്ട് എഞ്ചിനീയർമാരുടെയും സുരക്ഷാസേനയുടെയും സംഘവും ഇവരോടൊപ്പം ഉണ്ട്

യാത്രക്കാരുമായി യാതൊരു സമ്പർക്കവും വിമാന ജീവനക്കാർ പുലർത്തുകയില്ലെന്നും എയർ ഇന്ത്യ ചെയർമാൻ അശ്വനി ലൊഹാനി പറഞ്ഞു

് ഐശെലജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം സ്വകാര്യ മേഖലകളിലെ ആശുപത്രി ജീവനക്കാർക്ക് ഇതിനായി പ്രത്യേക പരിശീലനം നൽകാനും തീരുമാനമായി കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവർ പൊതുകൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് തൽക്കാലം ഒഴിവാക്കണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

രാജ്യ തലസ്ഥാനം മാലിന്യ മുക്തമാക്കുമെന്നും അഴിമതി രഹിത ഭരണം കാഴ്ചവയ്ക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു

അഞ്ച് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നും പ്രകടന പത്രികയിലുണ്ട്

ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് തോക്കുകളും വൻ സ്ഫോടന ശേഖരവും ് പിടിച്ചെടുത്തായി ഡി ജി

ദിൽബാഗ് സിംഗ് പറഞ്ഞു